രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് നിതി ആയോഗ് വിശ്വാസ വിഷയങ്ങളിൽ നിലപാട്ട് മാറ്റാൻ സിപിഐഎം തീരുമാനിച്ചതായി റിപ്പോർട്ട്

അഷ്ടമി രോഹിണിആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാ നത്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശോഭായാത്രകൾ സംഘടി പ്പിക്കും സ്വർണവില്ല വീണ്ടും കൂടി അമേരിക്കൻ ഡോളറിനെതിരെ രൂപയ്ക്ക് വൻ തകർച്ച മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിയ നിയമത്തിന്റെ സാധുത പരിശോധിക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചു നിയമത്തിനെ തിരെ സമർപ്പിച്ച ഹർജികൾ പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര ത്തിന് ഇതുസംബന്ധിച്ച നോട്ടീസ് അയക്കാൻ നിർദേശിച്ചു ഭര ണഘടനയുടെ വൃവസ്ഥകൾ ലംഘിക്കുന്നതാണ് നിയമമെന്ന് ആരോപിച്ചാണ് ഹർജികൾ സമർപ്പിച്ചത് ജസ്റ്റിസുമാരായ എൻ വി രമണയും അജയ് രസ്തോഗിയും അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് നിയമത്തിൽ വൃവസ്ഥ ചെയ്യുന്ന ജയിൽശിക്ഷയും ഒറ്റത്ത വണ മുത്തലാഖ് ക്രിമിനൽകുറ്റമാക്കുന്ന വ്യവസ്ഥയും പുനഃപരി ശോധിക്കണമെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ സൽമാൻ ഖുർഷിദ് ബെഞ്ചിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞമാസമാണ് പാർലമെന്റ് മുത്തലാഖ് ക്രിമിനൽകുറ്റമാക്കുന്ന നിയമം പാസ്സാക്കിയത് രാജൃം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ്കുമാർ അഭിപ്രായപ്പെട്ടു

ഇതോടെ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായ പ്രതിസന്ധി നേരി ടാൻ അസാധാരണ നടപടികളിലേക്ക് പോക്രേണ്ടി വന്നേക്കാ മെന്നും അദ്ദേഹം ഡൽഹിയിൽ വൃക്തമാക്കി സ്വകാരൃമേഖലയുടെ അവിശ്വാസം മ്മാറ്റാനും കൂടുതൽ നിക്ഷേ പങ്ങൾ നടത്താൻ പ്രോത്സാഹനം ന്ദൽകാനും ആവശ്യമായ നട പടികൾ സ്വീകരിക്കാൻ ഗവ തയ്യാറാക്ണമെന്ന് നീതി ആയോഗ് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എല്ലാകാര്യങ്ങളിലും അധിക്ഷേ പിക്കുന്നത് ശരിയല്ലെന്നും ഓരോ വിഷയത്തിന്റെയും അടിസ്ഥാ നത്തിലായിരിക്കണം വിമർശനമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗ്വി അഭിപ്രായപ്പെട്ടു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളുടെ ശരിതെറ്റുകൾ വിലയിരുത്തിയായിരിക്കണം പ്രതികരണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ട്വീറ്റ് ചെയ്തു ബുധനാഴ്ച മുൻകേന്ദ്രമന്ത്രി ജയ്റാം രമേശും സമാനമായ അഭിപ്രായപ്രകടനം നടത്തിയിരുന്നു ഉജല പദ്ധതിയുടെ വൻവിജയത്തെ അനുമോദിച്ച ജയ്റാം രമേ ശിനോട് അഭിഷേക് സിംഗ്വിയും ട്വിറ്ററിൽ അനുകൂല നിലപാട് അറിയിച്ചു മുൻ പ്രധാനമന്ത്രി ഡോ

രാജസ്ഥാനിൽ നിന്നാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്

ശ്രീനഗറിൽ വീണ്ടും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി

സംയുക്ത പ്രതിരോധ നേതൃ സംഘടന ജെ എൽആറാണ് മാർച്ചിന് ആഹ്വാനം ചെയ്ത പോസ്റ്ററുകൾ പതിപ്പിച്ച ത് വിശ്വാസ വിഷയങ്ങളിൽ പാലക്കാട്ട് പ്ലീനം നിലപാടിൽ ഭേദ ഗതി വരുത്താൻ സിപിഐഎം തീരൂമാനിച്ചതായി റിപ്പോർട്ടുകൾ വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് പാർട്ടി ഒഴിഞ്ഞു നിൽക്കണമെന്ന പ്തീനം തീരുമാനമാണ് മാറ്റുന്നത് ശബരിമല യുവതീപ്രവേശ വിഷയത്തിൽ നിർബന്ധ നിലപാട് വേണ്ടെന്നും പ്രാദേശിക ക്ഷേത്രകാര്യങ്ങളിൽ പാർട്ടി അംഗങ്ങൾ ഇടപെട്ടണമെന്നും സിപിഐഎം സംസ്ഥാന സമി തിയിൽ തീരുമാനിച്ചതായാണ് സൂചന സ്ത്രീ പ്രവേശ്ന വിഷയത്തിൽ സുപ്രീംകോടതി വിധിക്കു ശേഷം പാർട്ടി സ്വീകരിച്ച നിലപാട് വിശ്വാസിവിരുദ്ധമായെന്ന ആരോ പണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പാർട്ടിയുടെ നയം മാറ്റം നേതാ ക്കൾ ആർഭാടവും ആഡംബരവും ഒഴിവാക്കണമെന്നും തീരുമാനി ച്ചിട്ടുണ്ട് ശബരിമലവിഷയത്തിൽ ബിജെപി എടുത്ത നിലപാടുകളാണ് സിപിഐഎമ്മിനെ വിശ്വാസികൾക്കൊപ്പം നിൽക്കാൻ പ്രേരിപ്പിച്ച തീരുമാനമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധ രൻപിള്ള പറഞ്ഞു ശബരിമലയിൽ യുവതീപ്രവേശനത്തിന് മുൻകൈയ്യെടുക്കേണ്ടെന്ന സിപിഐഎം തീരുമാനം ബിജെപി നില പാടിന് ലഭിച്ച ജനസ്വീകാരൃതകൊണ്ടാണെന്നും ശ്രീധരൻപിള്ള അഭി പ്രായപ്പെട്ടു

പാർട്ടിയെ സംബന്ധിച്ച് അവർക്കുണ്ടായ തെറ്റിദ്ധാരണകൾ നീങ്ങിയതായി മന്ത്രി തിരുവന ന്തപുരത്ത് പറഞ്ഞു പാർട്ടിയിലെ ഒട്ടേറെ പേർ ശബരിമല വിശ്വാ സികളാണെന്നും ജയരാജൻ അഭിപ്രായപ്പെട്ടു

ശബരിമല വിഷയത്തിൽ ജനങ്ങൾ യുഡി എഫ് നിലപാടിനൊപ്പമായിരുന്നുവെന്നും ബിജെപി ആശയങ്ങൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അവിശ്വാസികൾ പള്ളി ക്ഷേത്ര ഭരണസമിതികളിൽ വരുന്നത് ശരിയല്ലെന്നും പാർട്ടി ആശയങ്ങൾ ആരാധ്നാക്രേന്ദ്രങ്ങളിൽ അടി ച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ വിശ്വാസികൾ ശക്തമായി പ്രതികരിക്കു മെന്നും മുരളീധരൻ സ്ഥകാര്യ ചാനലിനോട് പറഞ്ഞു ചെക്ക് കേസുമായി ബന്ധപ്പെട്ട് യുഎഇ യിൽ അറസ്റ്റിലായ തുഷാർ വെള്ളാപ്പള്ളിക്കുവേണ്ടി മൂഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയി ച്ചതിൽ തെറ്റില്ലെന്ന് മന്ത്രി ഇ പ്പി ജയരാജൻ പറഞ്ഞു

ഗൾഫിലെ ജയിലുകളിൽ ക്ഴിയുന്ന മറ്റാളുകൾ തുഷാറിന്റേതിന് സമാനമായ കേസുകളിൽ കുടുങ്ങിയവരല്ലെന്ന് മന്ത്രി വിശദീകരിച്ചു വണ്ടിച്ചെക്ക് കേസിൽ തുഷാർ വെള്ളാപ്പള്ളിയും പരാതിക്കാര നായ നസീൽ അബ്ദുള്ളയും ദുബായിൽ ഒത്തുതീർപ്പ് ചർച്ച തുട ങ്ങി നഷ്ടപരിഹാരം നൽകി കേസ് ഒത്തുതീർക്കാൻ ശ്രമം നട ത്താനാണ് താൽപര്യമെന്ന് തുഷാർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സംസ്ഥാന സഹകരണവകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂ മർ ഫെഡ് മുഖേന സംസ്ഥാനത്ത് ഈ വർഷത്തെ ഓണം വിപണി അടുത്തമാസം ഒന്നു മുതൽ പത്തുവരെ സംഘടിപ്പിക്കുമെന്ന് ചെയർമാൻ എം മെഹബൂബ് കൊച്ചിയിൽ അറിയിച്ചു

സുരക്ഷിത ശബ്ദശീലങ്ങളും അമിതശബ്ദമുണ്ടാകുന്ന ആരോ ഗ്യപ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന ആഗോള പാർലമെന്റ് തിരുവന ന്തപുരത്ത് തുടങ്ങി ഐഎംഎ യുടെ നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ സേഫ് സൌണ്ടുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന പാർല മെന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്പരിപാടി ഉദ്ഘാടനം ചെയ്തു സുരക്ഷിത ശബ്ദവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയ ങ്ങൾ മൂന്നു ദിവസത്തെ പാർലമെന്റിൽ ചർച്ച ചെയ്യും അഷ്ടമിരോഹിണി ദിനത്തിൽ ഉണ്ണിക്കണ്ണനെ വണങ്ങാൻ ഗുരു വായൂരിലേക്ക് ഭക്തജനപ്രവാഹ്ം

ബാലഗോകുലം അര ലക്ഷം കുട്ടികളെ പങ്കെടുപ്പിച്ച് അതിരുകളില്ലാത്ത സൌഹൃദം മതി ലുകളില്ലാത്ത മനസ്സ് എന്ന സന്ദേശത്തോടെ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട്ട് ബാലഗോകുലത്തിന്റെ ആഘോഷചടങ്ങുകൾ ഉച്ച കഴിഞ്ഞ് ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത് ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് നഗരത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഗതാഗ തനിയന്ത്രണമുണ്ടാകുമെന്ന് ട്രാഫിക് പൊലീസ് അറിയിച്ചു മഹാ ശോഭായാത്ര നടക്കുന്നതിനാൽ നഗരത്തിൽ ഗതാഗതം പുനഃക്രമീ കരിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി കണ്ണൂരിൽ ഇന്ന് വൈകുന്നേരം ശോഭായാത്ര നടക്കും

താവക്കരയിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്

പയ്യന്നൂർ മലയാള ഭാഷാ പുഠശാല്പയുടെ ഗൾഫ് കുടുംബം ഏർപ്പെടുത്തിയ പ്രഥമ കഥാ പുരസ്ക്കാരത്തിന് ആലപ്പുഴ വെൺമണിയിലെ സി

അനിൽ കുമാറും കവിതാ പുരസ്ക്കാരത്തിന് പൊന്നാനിയിലെ ഷാജി ഹനീഫും അർഹരായി

കഴിഞ്ഞ ഏതാനും ദിവസങ്ങ ളായി സ്വർണവില വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ ഡോളറിനെതിരെ രൂപയ്ക്ക് വൻ തകർച്ചു

ഈ വർഷം ആദ്യമായാണ് രൂപയുടെ മൂല്യം ഇത്രയേറെ കുറയുന്നത് ഓണം പ്രമാണിച്ച് സംസ്ഥാനത്ത് സാമൂഹൃ സുരക്ഷാപെൻഷൻ വിതരണം നാളെ ആരംഭിക്കും മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ പെൻഷനാണ് ഒറ്റത്തവണയായി നൽകുന്നത്

സംസ്ഥാനത്തെ നിർമാണമേഖലയിലെ തൊഴിലാളികളുടെ മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ചു കെട്ടിട നിർമാണം റോഡ് നിർമാണം പാറമട പുഴമണൽശേഖരണം എന്നീ മേഖലകളിലെ വ്യത്യസ്ത വിഭാഗം തൊഴിലാളികൾക്കാണ് വേതനം പുതുക്കിയ ത്

ഡാമിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് ഷട്ടറുകൾ ഉച്ചയോടെ തുറന്നത് പൂഴ്യുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രതപുലർത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കണ്ണൂർ ജില്ലയിൽ പ്രളയ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങളിൽ മികച്ച സേവനം ചെയ്ത വിവിധ് സേനാവിഭാഗങ്ങളെയും മത്സൃതൊഴിലാളികളെയും സന്നദ്ധ് പ്രപ്പർത്തകരെയും നാളെ മുഖൃ മന്ത്രി പിണറായി വിജയൻ ആദരിക്കും മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കും

സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ന്നിന്നുള്ള നൂറോളം ചിത്രകാരൻമാർ വരയ്ക്കുന്ന ചിത്രങ്ങൾ തർസമയം വിറ്റഴിച്ച് ലഭിക്കുന്നതുക മുഖ്യമന്ത്രിയുടെ ദൂരിതാശ്ചാസ നിധിയിലേക്ക് കൈമാറും രാവിലെ ജവഹർ ബാലഭവനിൽ മന്ത്രി ജെ മേഴ് സിക്കുട്ടിയമ്മ ഉദ് ഘാടനം നിർവഹിക്കും കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലെ ഭൂമിയിലുണ്ടായ വിള്ളൽ പൈപ്പിംഗ് പ്രതിഭാസമാണെന്ന് കരുതുന്നതായി വിദഗ്ധ സംഘം സൂചിപ്പിച്ചു ഉളിക്കൽ തേർമലയിൽ സംഘം പരിശോധന നടത്തി കൊട്ടിയൂർ പഞ്ചായത്തിലെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലും സംഘം പരിശോധന നടത്തി

ജില്ലയിൽ ഡയറി ഡിസാസ്റ്റർ മാനേ ജ്മെന്റ് സെൽ രൂപീകരിച്ചതായി ക്ഷീരവികസനവകുപ്പ് അറി യിച്ചു